മതനിരപേക്ഷത തകർക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭരണഘട നയെ അംഗീകരിക്കാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിനം സമനിലയിൽ ൾ ൽ ൾ സ്ത്രീപ്രവേശനം അനുവദിച്ചതിനെ തുടർന്ന് ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ അക്രമങ്ങൾക്കെതിരെ കർശന നട പടിയുമായി പൊലീസ് രംഗത്ത്

എല്ലാ ജില്ലകളിലെയും പൊലീസ് മേധാവികൾക്ക് ചിത്രങ്ങൾ കൈമാറി മുഴുവൻ പ്രതികളെയും പിടി കൂടാനാണ് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംഘം ചേർന്ന് അക്രമം നിരോധനാജ്ഞ ലംഘിക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കേസുകളാണ് ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്

ഇതിനായി പൊലീസ് ശബരിമലയിൽ കൃാമ്പ് ചെയ്ത് നടപടികൾ സ്വീകരിച്ചു തുടങ്ങി ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് ക്രമസമാധാന നില ഉറ പ്പുവരുത്താൻ ശക്തമായ പൊലീസ് സുരക്ഷ ഏർപ്പെടുത്തും

ജനകൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും അനൃസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സാമൂഹൃ പിരുദ്ധരെ തിരിച്ചറിയുന്നതിനുമായി കൂടുതൽ പൊലീസിനെ നൽകണമെന്ന് മറ്റ് സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥി ക്കാനും യോഗം തീരുമാനിച്ചു ശബരിമലയിലെ പൊലീസിന്റെ വെർച്ചൽ ക്യൂ സംവിധാനം കെഎസ്ആർടിസി സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിക്കുമെന്ന് ഡിജിപി അറിയിച്ചു ഇതിന്റെ പോർട്ടൽ ഉടൻ പ്രവർത്തക്ഷമമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സന്നിധാനത്തും പരിസരങ്ങളിലും കൂടുതൽ കൃാമറകൾ സ്ഥാപി ക്കും ശബരിമലയിലെ തിരക്ക് കുറക്കുന്നതിനായി ചെങ്ങന്നൂർ പത്ത നംതിട്ട എന്നിവിടങ്ങളിൽ അധിക സൌകര്യ ഏർപ്പെടുത്തുമെന്നും ഡിജിപി പറഞ്ഞു

കൊല്ലത്ത് എൽഡിഎഫ് സംഗമത്തിൽ പ്രസംഗിക്കുകയായി രുന്നു അദ്ദേഹം സുപ്രീം കോടതി വിധി നിയമമാണെന്നും അത് നടപ്പാക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി പറ ഞ്ഞു സുപ്രീം കോടതി വിധി നടപ്പാക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പു നൽകിയ ഗവൺമെന്റ് വിധി സംബന്ധിച്ച് പുനപരിശോധന ഹർജിയുമായി പോകുന്നത് അങ്ങേയറ്റം അപഹാസൃമാണെന്നും ഗവൺമെന്റ് അതിന് തുനിയില്ലെന്നും പിണറായി വ്യക്തമാക്കി ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി വിശ്വാസി സമൂഹത്തെ ഭയ പ്പെടുത്തുകയാണെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃ ഷ്ണൻ കുറ്റപ്പെടുത്തി തനിക്ക് ഇഷ്ടമില്ലാത്ത് ആരു പറഞ്ഞാലും അവരെ അപമാനിക്കാനാണ് മുഖൃമന്ത്രി ശ്രമിക്കുന്നിതെന്ന് അദ്ദേഹം ആരോപിച്ചു

തൃശൂർ എറണാകുളം കോട്ടയം ജില്ലകളിലെ വിവിധ പദ്ധതി കളും അംഗീകാരം ലഭിച്ചവയിൽ പെടും

വിത്തുതേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് തീരുമാനമെന്ന് മന്ത്രി വി

കേരളത്തെ സമ്പൂർണ ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനമാക്കു ന്നതിന് സമഗ്രപദ്ധതി ആവിഷ്ക്കരിക്കുമെന്ന് മന്ത്രി കെ

ഇതിന്റെ ഭാഗമായി ഒരു വയസ്സിന് താഴെ പ്രായം വരുന്ന കുട്ടികളുടെ കേൾവി ശാരീരിക പ്രശ്നങ്ങൾ വളർച്ചാ വികാസ ത്തിലെ നാഴികകല്ലുകൾ എന്നിവ നിർണയിക്കാൻ സാമൂഹ്യനീതി വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി സർവെ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു

ദേശീയ വിരവിമുക്തി ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാ നത്തെ സ്കൂളിലും അങ്കൺവാട്ടികളിലും ഇന്ന് വിരഗുളിക വിത രണം ചെയ്യും

ദിനാചരണത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം രാവിലെ കുന്നമംഗലം ഹയർ സെക്കന്ററി സ്കൂളിൽ നടക്കും

കുട്ടിക ളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് അയൽപക്ക ദൂരപരിധി ക്കുള്ളിൽ സ്കൂളുകൾ സ്ഥാപിച്ചു നൽകണമെന്ന വിദ്യാഭ്യാസ അവ കാശ നിയമത്തിലെ ആറാം വകുപ്പ് പ്രകാരമാണ് കമ്മീഷന്റെ ഉത്ത രവ് ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടി കൾക്ക് ഒരു കിലോമീറ്ററിനുള്ളിലും ആറു മുതൽ എട്ടു വരെ ക്ലാസു കളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മൂന്ന് കിലോമീറ്ററിനുള്ളിലും ്യസ്കൂൾ സൌകര്യം ഏർപ്പെടുത്തണമെന്നാണ് ചട്ടം അനുശാസിക്കുന്നത് കായംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിനിടെ സംഘർഷത്തെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സ യിലായിരുന്ന കൌൺസിലർ മരിച്ചു എൽഡിഎഫ് കൌൺസിലർ വി

അജ യൻ ആണ് ഇന്ന് പുലർച്ചെ പരുമലയിലെ സ്ഥകാര്യ ആശുപത്രിയിൽ മരിച്ചത് ഇന്നലെ നടന്ന കൌൺസിൽ യോഗത്തിൽ സ്വകാര്യ ബസ്സ്റ്റാന്റിന് സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച ചർച്ച സംഘട്ടനത്തിന് വഴി യൊരുക്കിയിരുന്നു ഒമ്പത് കൌൺസിലർമാർക്കാണ് പരിക്കേറ്റത് വിശാഖപ്പട്ടണത്ത് ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് രണ്ടാം ഏകദിനം സമനിലയിൽ കലാശിച്ചു അവസാന ഓവർ വരെ മാറി മറിഞ്ഞ സാധ്യതകൾ നാടകീയത സൃഷ്ടിച്ച ആവേശം നിറഞ്ഞ മത്സരത്തി നൊടുവിലാണ് മത്സരം സമനിലയിലായത്

ഐഎസ്എൽ ഫുട്ബോളിൽ എഫ്സി ഗോവക്ക് തകർപ്പൻ ജയം

ഇരു ടീമുകളും തമ്മിൽ മസ്ക്ക റ്റിൽ ഇന്നലെ നടന്ന മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരി ഞ്ഞതോടെ ഇന്തൃക്കും മലേഷ്യക്കും ഒരു പോയിന്റ് വീതം ലഭിച്ചു

കേരളം തമിഴ്നാട് കർണാടക തുടങ്ങി എട്ട് തപാൽ സർക്കിളുക ളിലെ ടീമുകൾ പങ്കെടുക്കുമെന്ന് അധികൃതർ കോഴിക്കോട്ട് അറിയി ച്ചും ബിജെപി കണ്ണൂർ ജില്ലാ കമ്മറ്റി ഓഫീസായി മാരാർജി മന്ദിര ത്തിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നിർവ്വഹിക്കും കണ്ണൂർ താളിക്കാവിനടുത്താണ് പുതിയ ഓഫീസ് സമുച്ചയം നിർമ്മിച്ചത് മറ്റന്നാൾ രാവിലെ കണ്ണൂർ വിമാന ത്താവളത്തിലിറങ്ങുന്ന അമിത്ഷാ പിണറായിയിൽ കൊല്ലപ്പെട്ട ബിജെപി പ്രവർത്തകരുടെ വീടുകളും സന്ദർശിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെൽ കോ ഓർഡിനേറ്റർ കെ രഞ്ജിത്ത് കണ്ണൂരിൽ അറിയിച്ചു ചാല പൈതൃകത്തെരുവിന്റെ ഒന്നാം ഘട്ടം നാലു മാസത്തിനു ള്ളിൽ പൂർത്തിയാക്കാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷ തയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗം തീരുമാനി ച്ചു ഒന്നാം ഘട്ടത്തിൽ വെജിറ്റബിൾ മാർക്കറ്റ് അമിനിറ്റി സെന്റർ പ്രധാന കവാടം എന്നിവയാണ് പൂർത്തിയാക്കുക പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങ ളുടെയും വിലയും അളവും ഗുണനിലവാരവും കൃത്യമാണെന്ന് ഉറ പ്പുവരുത്തുന്നതിന് ലീഗൽ മെട്രോളജി വകുപ്പിനെ ശക്തിപ്പെടുത്തുന്ന ശ്രമങ്ങളാണ് ഗവൺമെന്റ് നടത്തിവരുന്നതെന്ന് മന്ത്രി പി

പത്തനംതിട്ട കോന്നിയിൽ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ അധൃക്ഷയ്ക്കും ഉപാധൃക്ഷനും എതിരെ യുഡിഎഫ് അവിശ്വാസ പ്രമേയ നോട്ടിസ് നൽകി

മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുതിനുള്ള സാധ്യതാ പഠനത്തിന് അനുമതി ലഭിച്ചത് പ്രളയാനന്തര കേരളത്തിന് ഏറെ ആശ്വാസകരമാണെന്നും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആശങ്ക അക റ്റുന്ന നടപടിയാണിതെന്നും ജോയ്സ് ജോർജ് എംപി പറഞ്ഞു കേര ളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ ഇക്കാരൃത്തിൽ കൂട്ടായ പരിശ്രമ ങ്ങളാണ് നടത്തിയതെന്നും അദ്ദേഹം ചെറുതോണിയിൽ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ രണ്ടാം വിളയ്ക്കായി ജലസേചന കലണ്ടർ തയ്യാറാക്കി മലമ്പുഴ ഡാമിൽ നിന്ന് അടുത്തമാസം ഒന്നിനും പോത്തുണ്ടി ഡാമിൽ നിന്ന് പത്തിനും മംഗലം ഡാമിൽ നിന്ന് പതിനഞ്ചിനും ജലസേചനം ആരംഭിക്കും ഇതിന് മുന്നോടിയായി ജില്ലയിലെ കനാലുകൾ വൃത്തിയാക്കുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കും

സമഗ്ര സംഭാവനക്ക് സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുര സ്കാരം ഉൾപ്പടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പാലക്കാട് ഒറ്റപ്പാലത്ത് നീന്തൽ പരിശീലനത്തിനിടെ അച്ഛനും മകനും മുങ്ങി മരിച്ചു ഒറ്റപ്പാലം എസ്

നഗറിൽ ജയൻ മകൻ പത്താം ക്ലാസ്സ് വിദ്യാർത്ഥി നിരഞ്ജൻ എന്നിവരാണ് മരിച്ചത് വീടിനു സമീപത്തെ കുളത്തിൽ ഇന്നലെ വൈകീട്ടായിരുന്നു അപകടം വെടിമരുന്നുപയോഗിച്ച് തോട്ട പൊട്ടിച്ച് മത്സ്യം പിടിക്കാനായി സ്ഫോടനം നടത്തുന്നതിനിടെ പരിക്കേറ്റയാൾ മരിച്ചു കണ്ണൂർ ഇരി ട്ടിക്കടുത്ത് കച്ചേരിക്കടവിലെ ജോർജ് ആണ് മരിച്ചത് മുക്കുപണ്ടം പണയം വെച്ച് വൻതട്ടിപ്പ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം അയിരൂപ്പാറ ഫാർമേഴ്സ് സർവീസ് സഹ കരണ ബാങ്ക് ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തി